ദേശീയ അദ്ധ്യാപക യോഗൃതാ പരീക്ഷയായ സി ടെറ്റിനുള്ള ഓൺലൈൻ അപേക്ഷാസമർപ്പണം ഇന്ന് മുതൽ ആരംഭിക്കും

കേരളത്തിൽ ഇടുക്കി ഡാം തുറക്കേണ്ട സാഹചര്യമില്ലെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ്മന്ത്രി മാത്യു ടി തോമസ്

ഇന്ത്യ ക്വാർട്ടറിൽ പ്രവേശിച്ചു

സർവ്വേ ഈ മാസം അവസാനം വരെ നീണ്ടു നിൽക്കും

ഇന്നലെ പുറപ്പെടുവിച്ച ട്വീറ്റ് സന്ദേശത്തിൽ ഇന്ന് ആരംഭിക്കുന്ന സർവ്വേശ്രുചിത്വഭാരതം പടുത്തുയർത്താനുള്ള ശ്രമങ്ങൾക്ക് കരുത്ത് പ്രകരുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു

ബി എസ്

ബി എസ് ഇ പ്രസിദ്ധീകരിച്ചു

ഇന്നലെ ന്യൂഡൽഹിയിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്

വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും സബ്സിഡികളും ലഭിക്കുന്നതിനുള്ള പ്രാധാന്യമേറിയ തിരിച്ചറിയൽ കാർഡാണ് ആദാർ എന്നും അതുകൊണ്ടു തന്നെ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തികൾ നിയമവിരുദ്ധമാണെന്നും അവർ ഓർമ്മിപ്പിച്ചു

എൻ കെ സിംഗ് ചെയർമാനായ കമ്മീഷനാണ് മൂന്ന് ദിവസത്തെ ്സന്ദർശനത്തിന് എത്തുന്നത് സംസ്ഥാനത്തിന്റെ ധനകാര്യ പ്രിഷ്യങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ ചർച്ച നടത്തും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും കമ്മീഷൻ കൂടിക്കാഴ്ച നട്ടത്തും കമ്മീഷൻ സന്ദർശിക്കുന്ന ഏഴാമത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ്

പ്രഖ്യാപനത്തെ തുടർന്ന് അമേരിക്കൻ അധികാര പരിധിയിലെ ഭാക്കിലിന്റെ പേരിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വസ്തുവകകൾക്കും വിലക്കു വീഴും മറ്റ് രണ്ട് ഭികരരും ആഗോള തലത്തിൽ ഭികരർക്ക് സാമ്പത്തിക സഹായം നൽകിവരുന്നവരാണെന്നും ഭീകര വിരുദ്ധ നയങ്ങൾക്കായുള്ള അമേരിക്കൻ ഏജൻസിയുടെ അറിയിപ്പിൽ പറയുന്നു

സറൈലി ജില്ലാ മജിസ്ട്രേറ്റിനും സീനിയർ പോലീസ് സൂപ്രണ്ടിനും നൽകിയ ഉത്തരവിലാണ് ചെയർമാന്റെ നിർദ്ദേശം ഇതു സംബന്ധിച്ച് സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷന്റെ ഉത്തരവിൽ നിർദ്ദേശമുണ്ട്

ഇവരെ എത്രയും വേഗം ചെന്നൈയിൽ എത്തിക്കുമെന്ന് ശ്രീമതി

മീൻപിടുത്തക്കാരുടെ മോചനത്തിന് സഹായിച്ച ഇന്ത്യൻ എംബസിക്കും ബന്ധർ അബ്ബാസ് ഭരണകൂടത്തിനും നന്ദി അറിയിക്കുന്നതായി മന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

മുൻകൂട്ടി അറിയിപ്പ് നൽകിയ ശേഷമേ ട്രയൽ റൺ നടത്തുകയോ ഷട്ടറുകൾ തുറന്നുവിടുകയോ ചെയ്യുകയുള്ളൂ

ചെറുതോണി ഡാ് മുതൽ പനങ്കുട്ടിവരെയുള്ള പ്രദേശങ്ങളിൽ ഒഴുക്കു തടസപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കും

എൽ എ ജില്ലാ കളക്ടർ ജീവൻ ബാബു കെ ജില്ലു പോലീസ് മേധാവി കെ ബി വേണുഗോപാൽ വിവിധ വ്യക്ടൂപ്പു തലവന്മാർ എന്നിവരുമായി ഒരുക്കങ്ങൾ സംബന്ധിച്ച പുരോഗതി മന്ത്രി ചർച്ചചെയ്തു

ലണ്ടൻ കോടതി ജഡ്ജി എമ്മാ ആർബത്നോട്ടാണ് ഇന്നലെ പാർപ്പിട സൌകര്യം ഉറപ്പാക്കാനായി സെല്ലിന്റെ വീഡിയോ ചിത്രം സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്

പരിക്കേറ്റ ജവാനെ മിലിട്ടറി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിർത്തി സുരക്ഷാസേന തിരിച്ചടിച്ചതായി സൈനിക വൃത്തങ്ങൾ ആകാശവാണിയോടു പറഞ്ഞു

വിരാട് കോഹ്ലി നായകനായ ശേഷം ഇംഗ്ലണ്ടിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റ് പരമ്പരയാണിത് ആതിഥേയരും ഒട്ടും പിന്നിലല്ല

മികച്ച ഒരു മൽസരത്തിന്റെ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് ക്രിക്കറ്റ് പ്രേമികൾ

ഇതിനായി ഈ രാജ്യങ്ങളുമായി അടുത്ത മാസം ചർച്ചകൾ ആരംഭിക്കുമെന്ന് സംഘത്തലവൻ സ്റ്റെഫാൻ ദി മിസ്തൂരയുടെ ഓഫിസ് അറിയിക്കുന്നു

പുതിയ സമിതിയിൽ ഉൾപ്പെടുത്തേണ്ട അംഗങ്ങളുടെ പേരുവിവരങ്ങൾ സിറിയയിലെ ആസാദ് സർക്കാരിൽ നിന്ന് ലഭിച്ചതായും ശ്രീ

ശ്രീകാന്ത് എന്നിവർ രണ്ടാം റൌണ്ടിൽ എത്തി വനിത ഡബിൾസിൽ അശ്വനി പൊന്നപ്പ സിക്കി റെഡ്ഢി സഖ്യം രണ്ടാം റൌണ്ടില കടന്നു